ആദ്യ രണ്ട് വിമാനങ്ങൾ ഇന്ന് രാത്രി കൊച്ചിയിലും കോഴിക്കോട്ടും ഇറങ്ങും

പ്രവാസികൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പ് സുസജ്ജമെന്ന് മന്ത്രി കെ

ത ഇന്ന് ബുദ്ധപൂർണ്ണിമ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ദിനാചരണ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും വാർത്തകൾ വിശദമായി കോവിഡ് ബാധിത രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന വന്ദേഭാരത് ദൌത്യത്തിന് ഇന്ന് തുടക്കമാകും

യുഎഇ യിൽ നിന്ന് ആണ് ഏറ്റവും അധികം വിമാനങ്ങൾ സർവ്വീസ് നടത്തുന്നത് പത്ത് വിമാനങ്ങളിൽ അവിടെ നിന്ന് പ്രവാസികളെ നാട്ടിലെത്തിക്കും അമേരിക്ക യുകെ ബംഗ്ലാദേശ് മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഏഴു വീതം വിമാനങ്ങളും സൌദി അറേബ്യ സിങ്കപ്പൂർ ഫിലിപ്പൈൻസ് കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് അഞ്ച് വീതം വിമാനങ്ങളും പ്രവാസികളെ കൊണ്ടുവരാൻ സർവ്വീസ് നടത്തും ഒമാനിൽ നിന്നും ഖത്തറിൽ നിന്നും രണ്ട് വീതം വിമാനങ്ങളിലാണ് പ്രവാസികളെ കൊണ്ടുവരുന്നത്

ഇന്ന് ആദ്യ രണ്ട് വന്ദേഭാരത് വിമാനങ്ങളും കേരളത്തിലാണ് എത്തുന്നത്

രണ്ടാമത്തെ വിമാനം ദുബായിയിൽ നിന്ന് രാത്രി പത്തരക്ക് കരിപ്പൂരിൽ ഇറങ്ങും

ഇന്ന് സർവ്വീസ് നടത്തുമെന്ന് അറിയിച്ചിരുന്ന റിയാദ് കരിപ്പൂർ വിമാനം നാളെയായിരിക്കും സർവ്വീസ് നടത്തുക കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും യാത്രക്കാരെ കൊണ്ടുവരുന്നത് കോവിഡ് ബാധിതരല്ലെന്ന് ഉറപ്പു വരുത്തുന്ന ടെസ്റ്റുകൾക്ക് ശേഷമായിരിക്കും യാത്ര പുറപ്പെടുന്നത് സംസ്ഥാനത്തെത്തുന്ന യാത്രക്കാരെ എല്ലാവരേയും കർശന ആരോഗ്യ പരിശോധനകൾക്ക് വിധേയരാക്കും

അല്ലാത്തവരെ അതാത് ജില്ലകളിലെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് കെഎസ്ആർടിസി ബസ്സുകളിൽ കൊണ്ടുപോകും കൊച്ചിയിലെത്തുന്ന രോഗലക്ഷണം കാണിക്കുന്നവരെ ആലുവ ജില്ലാ ആശുപത്രിയിലേക്ക് ആയിരിക്കും മാറ്റുക

രംഭ കേരളത്തിൽ മടങ്ങിയെത്തുന്ന പ്രവാസികൾക്കാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും തിരിച്ചെത്തുന്നവർ താമസ സ്ഥലം മുതൽ യാത്രാ വേളയിൽ ഉടനീളം അതീവ ജാഗ്രത പുലർത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു

പ്രവാസികൾ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് മുതൽ പരിശോധനയും ആവശ്യമായവർക്ക് വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കും കണ്ണൂർ കരിപ്പൂർ നെടുമ്പാശ്ശേരി തിരുവനന്തപുരം വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനങ്ങൾ കരിപ്പൂരിൽ ആഗമനം നെടുമ്പാശേരിയിൽ ആയുർ രക്ഷ തിരുവനന്തപുരത്ത് കരുതൽ എന്നീ പേരുകളിൽ ആരോഗ്യ രക്ഷാ ആപ്പിക്കേഷനുകൾ തയാറാക്കിയിട്ടുണ്ട് നോർക്ക വഴി നാട്ടിലെത്താൻ രജിസ്റ്റർ ചെയ്തവരുടെ പൂർണ്ണ വിവരങ്ങൾ ആപ്പിൽ ലഭ്യമാണ്

ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം അവരുടെ തുടർ യാത്രയ്ക്ക് സൌകര്യമൊരുക്കുന്നത് കെഎസ്ആർടിസിയാണ്

പ്രവാസികളുടെ മടങ്ങി വരവ് മുന്നൊരുക്കങ്ങൾ എംപിമാരുടെയും എംഎൽഎമാരുടെയും വീഡിയോ കോൺഫറൻസിൽ ചർച്ച ചെയ്യുകയായിരുന്നു അവർ

ഏഴു പേർക്ക് രോഗം മാറി

കാസർകോട് കണ്ണൂർ വയനാട് കൊല്ലം പാലക്കാട് ഇടുക്കി ജില്ലകളിൽ മാത്രമാണ് രോഗബാധിതർ

ജില്ലയിലെ ഒന്നിലധികം നിലകളില്ലാത്ത ചെറുകിട ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾ അഞ്ചിൽ താഴെ ജീവനക്കാരുമായി തുറന്ന് പ്രവർത്തിക്കാൻ ജില്ലാ കലക്ടർ അനുമതി നൽകി

ഇന്നലെ നിരീക്ഷണത്തിന്റെ ഭാഗമായി ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ട് പേരെ ഡിസ്ചാർജ് ചെയ്തു രുദ ഇന്നലെ ആറു പേർ കൂടി സുഖം പ്രാപിച്ചതോടെ കോട്ടയം ജില്ല വീണ്ടും കോവിഡ് മുക്തമായി

രോഗികൾ ഇല്ലെങ്കിലും ജില്ലയിലെ ഹോട്സ്പോട്ടുകൾക്ക് മാറ്റം ഉണ്ടാകില്ല രുദ ഇതരസംസ്ഥാനങ്ങളിൽനിന്ന് മഞ്ചേശ്വരം ചെക്ക്പോസ്റ്റ് വഴി കൂടുതൽപേർ കേരളത്തിലെത്തി

ജഗന്നിവാസൻ

ചെന്നൈ കോയമ്പേട് മാർക്കറ്റിൽ പോയ ട്രക്ക് ഡ്രൈവർമാർ നിർബന്ധമായും ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടണമെന്ന് വയനാട് ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടു വയനാട്ടിൽ തിരിച്ചെത്തിയ ഡ്രൈവർക്ക് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് നിർദേശം ദരദ കോവിഡ് സാഹചര്യത്തിൽ രാജ്യത്തുനിന്ന് ആൽക്കഹോൾ അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്ന ഹാൻഡ് സാനിറ്റൈസർ കയറ്റുമതി കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ചു ഉടൻ പ്രാബല്യത്തിൽ വരുന്ന തരത്തിലാണ് വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് കയറ്റുമതി വിലക്ക് ഏർപ്പെടുത്തിയത്

മറ്റു സംസ്ഥാനങ്ങളിലെ റെഡ് സോണുകളിൽ നിന്ന് വരുന്നവരെ കോവിഡ് കെയർ കേന്ദ്രങ്ങളിൽ നിരീക്ഷണത്തിൽ പാർപ്പിക്കും

രുദ അതിഥി തൊഴിലാളികൾക്കായി ആലപ്പുഴയിൽനിന്ന് ബീഹാറിലേക്ക് രണ്ടാമത്തെ ട്രെയിൻ ഇന്ന് യാത്ര തിരിയ്ക്കും

രുമ കണ്ണൂരിലെ അതിഥി തൊഴിലാളികൾക്കായി ഇന്ന് ഉത്തർപ്രദേശിലേക്കും ജാർഖണ്ഡിലേക്കും ഓരോ ട്രെയിനുകൾ പുറപ്പെടും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ബുദ്ധപൂർണ്ണിമ ദിനാചരണ ചടങ്ങിൽ പങ്കെടുക്കും ലോകത്തെ ബുദ്ധമത നേതാക്കളെ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ ചടങ്ങിൽ അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തും ദേദ കോട്ടയത്തെ കെ

നാരായണൻ ദേശീയ വിഷ്വൽ സയൻസ് ആന്റ് ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായി പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെ നിയമിച്ചു ഇപ്പോഴത്തെ ചെയർമാന്റെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നിയമനം